ലലലലല പാലായിൽ എൽ സഡി എഫിന്റെ മുന്നേറ്റും കേരളത്തിൽ ഇടത് ത്രംഗം അലയടിക്കുന്നതിന്റെ തെളിവാണെന്നും ഇടതിന്റെ അടിത്തറക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ വിജയം സുനിശ്ചിതമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു

യു ഡി എഫിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാ പിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് കേന്ദ്രനേതൃത്വം പ്രഖ്യാപിച്ചേക്കും സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എൽ ഡി എഫ് ഇന്നലെ അഞ്ചു സ്ഥാനാർത്ഥിക ളെയും പ്രഖ്യാപിച്ചു

ഫ്ളാറ്റിൽ കഴിയുന്നവർക്ക് പകരം താമസ സൌകരൃം ഒരുക്കുകയും നാലാഴ്ചക്കകം നഷ്ടപരിഹാരം നൽകുകയും വേണം

അതി നുശേഷം നഷ്ടം വിലയിരുത്താൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും ജസ്റ്റിസ് അരുൺമിശ്ര ആവശ്യ പ്പെട്ടു ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്ന് ഈ തുക തിരികെ പിടിക്കണം നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ ഫ്ളാറ്റുകളിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന ആവ ശൃവും കോടതി

കെട്ടിടങ്ങൾ പൊളിക്കാൻ നടപടി ആരംഭിച്ചതായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ കോട തിയെ അറിയിച്ചു കെട്ടിടങ്ങൾ നിലനിർത്താൻ അനുവദിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഹർജിയിലെ ആവശ്യം കോടതി അനുവദിച്ചില്ല കെട്ടിടം പൊളിക്കാൻ സംസ്ഥാന സംവി ധാനങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഏൽപ്പി ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു

ദേശീയ ടൂറിസം അവാർഡുകൾ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വിതരണം ചെയ്തു വിനോദ സഞ്ചാര മേഖലയിലെ സമഗ്ര വളർച്ചയ്ക്ക് ആന്ധ്രാപ്രദേശിനാണ് പുരസ്കാരം സാഹസിക ടൂറിസത്തിന് മധ്യപ്രദേശും ഗോവയും സംയുക്ത വിജയികളായി ടൂറിസം മേഖലയിൽ വിവര സാങ്കേതിക വിദ്യ മികച്ച രീതിയിൽ ഉപയോഗിച്ചു സംസ്ഥാനം എന്ന ബഹുമതി തെലങ്കാനയ്ക്കാണ് ചലച്ചിത്ര വികസന സൌഹൃദ ടൂറിസം സാഹചരൃ മെട്രുക്കിയതിന് ഉത്തരാഖണ്ഡ് പുരസ്കാരം

നാസയുടെ നിരീക്ഷണ പേടകം എടുത്ത ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് ചന്ദ്രോപരിതലത്തിൽ സാവ ധാനത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിക്രം ലാൻഡറിന് അവ സാന നിമിഷം നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു അതിനുശേഷം ഓർബിറ്ററുമായും ബെങ്കലൂരുവിലെ നിയ ന്ത്രണ സംവിധാനവുമായും ആശയവിനിമയം നഷ്ടമാ യി

ഇതേതുടർന്ന് പ്രഗ്യാൻ റോവറിന് കേടുപറ്റിയതാവാമെന്നും നാസ അറിയിച്ചു

ശിവൻ പറഞ്ഞു

മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിക്കുകയാണ് ഗഗൻയാൻ ദൌത്യത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ബെങ്ക ളൂരുവിൽ പറഞ്ഞു

രാത്രി ഏഎട്ടിനും ഒൻപതിനും ഇടയ്ക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം അന്താരാഷ്ട്രതലത്തിലെ രാജ്യത്തിന്റെ വീക്ഷണ ഗതിയ്ക്ക് ഊന്നൽ നൽകിയാകും മോദി സംസാരിക്കുക ൾ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് എക്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ബോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവെ ചെന്നൈയിൽ അറിയിച്ചു

യാത്രക്കാരുടെ തിരക്കും ബോഗികളുടെ ലഭ്യതയും പരിശോധിച്ച് വരികയാണെന്ന് റെയിൽവെ വ്യക്തമാക്കി പരശുറാം എക്സ്പ്രസിന്റെ കോച്ചുകൾ വെട്ടിക്കുറച്ചത് പുനസ്ഥാപിക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് കെ സുധാകരൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടു

തിരക്ക് മൂലം ട്രെയിനിൽ യാത്രക്കാർ ദുരിതത്തിലാണെന്ന് അദ്ദേഹം വൃക്തമാക്കി ലലലലല അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രയുടെ പുതിയ രൂപ രേഖ തയ്യാറാക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് മന്ത്രാലയം ജോയന്റ് സെക്രട്ടറി ജാനെ ആലം പറഞ്ഞു ഇതിനായി അടുത്ത ദിവസം കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃ ത്വത്തിൽ യോഗം ചേരുമെന്നും അദ്ദേഹം വൃക്തമാക്കി കൊണ്ടോട്ടിയിൽ കേന്ദ്ര ഹജ്ജ് കമ്മറ്റി അംഗങ്ങളുടെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജന്മദിന സമ്മേളനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കും

ഇന്തൃയിലെയും വിദേശത്തെയും ടൂറിസം വിദഗ്ദ്ധരും മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ടു ദിവസത്തെ സമ്മേളന ത്തിൽ പങ്കെടുക്കും

യോഗം തീരുമാനിച്ചു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട അക്കൌണ്ടുകളുടെ ഉടമകൾക്ക് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര പ്രതൃക്ഷനികുതി ബോർഡ് സി ബി

കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണൂർ കൂട്ടുപുഴ പാലം നിർമ്മിക്കുന്നതിന് കർണാടക വനൃ ജീവി ബോർഡ് യോഗം അംഗീകാരം നൽകിയതായി സണ്ണി ജോസഫ് എം

അറിയിച്ചു

കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ കവുങ്ങിന്റെ മഞ്ഞളിപ്പ് രോഗം മണ്ണിലെ ദ്വിതീയ സൂഷ്മമൂലകങ്ങളുടെ കുറവുമൂലമാണെന്ന് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ മണ്ണിലെ ഉയർന്ന പുളിരസം കുമിൾ രോഗങ്ങളുടെ സാന്നിധ്യം എന്നിവയും രോഗകാർണമാണ്

ശ്രീകുമാറിന്റെ നേതൃത്യത്തിലുള്ള സംഘം ആലക്കോട് പഞ്ചായത്തിലാണ് പരിശോധന നടത്തിയത്